മന്ത്രിസഭായോഗം എട്ട് ഓർഡിനൻസുകൾ പുനഃവിളംബരം ചെയ്യുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേരള വിദ്യാഭ്യാസ ഭേദഗതി ഓർഡിനൻസ് കേരള സംസ്ഥാന ചരക്കുസേവന നികുതി ഭേദഗതി ഓർഡിനൻസ് കേരള മിനറൽസ് വെസ്റ്റിംഗ് ഓഫ് റൈറ്റ്സ് ഓർഡിനൻസ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡ് ഭേദഗതി ഓർഡിനൻസ് കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഭേദഗതി ഓർഡിനൻസ് കേരള അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഭേദഗതി ഓർഡിനൻസ് കേരള ലേബർ വെൽഫയർ ഫണ്ട് ഭേദഗതി ഓർഡിനൻസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആന്റ് ടെക്നോളജി ഓർഡിനൻസ് എന്നിവയാണ് പുനഃവിളംബരം ചെയ്യാൻ ശുപാർശ ചെയ്തത്